മൂന്ന് ഇന്തോ ബംഗ്ലാദേശ് സംയുക്ത പദ്ധതികൾക്ക് തുടക്കമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു

ഇന്ധന വിലവർദ്ധനയുടെ പേരിൽ കോൺഗ്രസും പ്രതിപക്ഷവും ജനങ്ങളെ തെറ്റിദ്ധ്രിപ്പിക്കുകയാണെന്ന് ബി ജെ

പ്രതിപക്ഷ ബന്ദ് ജനങ്ങൾ നിരാകരിച്ചതായി കേന്ദ്രമന്ത്രി രവിശങ്കർ പ്ര്യസാദ്

ഹൈദ്രാബാദ് ഇരട്ട സ്ഫോടനകേസിൽ രണ്ട് ഇന്ത്യൻ മുജാഹിദ്ദീൻ പ്രവർത്തകർക്ക് വധശിക്ഷ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ചേർന്ന് വീസ്സിയോ കോൺഫറൻസിംഗിലൂടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു റെയിൽവേ വികസനം വൈദ്യുതി വികസനം എന്നിവയാണ് പ്രധാനപദ്ധതികൾ

ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ജെ

ഇന്ധനവിലവർദ്ധനയുടെ പേരിൽ കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബി ജെ

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

ജെ പി മുതിർന്ന നേതാവുമായി രവിശങ്കർ പ്രസാദ് പറഞ്ഞു ബന്ദ് ദിനത്തിൽ ചികിത്സ കിട്ടാതെ കുട്ടി മരിക്കാനിടയായതിൽ കോൺഗ്രസ് മറുപടി നൽകണം ബീഹാറിൽ രണ്ട് വയസ്സുള്ള കുട്ടി മരിച്ച സംഭവം രാജ്യമെമ്പാടും ഭയത്തിന്റെ അന്തരീക്ഷമാണ് സംജാതമാക്കിയത് പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ ജനാധിപത്യത്തിൽ അക്രമത്തിന് സ്ഥാനമില്ല ബന്ദനുകൂലികൾ വ്യാപകമായി ബസ്സുകൾ തടഞ്ഞു മെഡിക്കൽ സ്റ്റോറുകൾ അടച്ചിട്ടു ഗവൺമെന്റ് ജനങ്ങളോടൊപ്പമാണെന്നും വിലക്കയറ്റും നിയുന്ത്രിക്കാൻ നടപടികൾ എടുത്തുവരികയാണെന്നും ശ്രീ

അന്താരാഷ്ട്ര വിപണി വിലയനുക്ക്രിച്ചാണ് പെട്രോളിനും ഡീസലിനും വിലവർദ്ധിക്കുന്നത് രാ്ജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് എൻ

രാജ്യത്തെ സാമ്പത്തിക് സ്ത്ഥിതിയെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് ശ്രീ

ഭാരത് ബന്ദിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിന്നു

ജെ ഡിയും ബന്ദിന് പിൻതുണ നൽകിയില്ല

എഫും യു ഡി എഫും ആഹ്വാനം ചെയ്ത ഹർത്താൽ കേരളത്തിൽ ഏറെക്കുറെ പൂർണ്ണമായിരുന്നു കട കമ്പോളങ്ങൾ അടഞ്ഞു കിടന്നു

എസ് ആർ ടി സി

ഹർത്താലിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം സംയുക്ത പ്രകടനങ്ങൾ നടന്നു

ചിക്കാഗോയിലെ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രവാസി ഭാരതീയർ ഇന്ത്യൻ സംസ്ക്കാരത്തിന്റെ സ്ഥാനപതികളാകണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

ഇന്ത്യയും അമേരിക്കയും പല രംഗങ്ങളിലും സ്ഹകരണം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യിൽ സാമ്പത്തിക വികസനത്തിനുപരിയായിട്ട് പ്ലിയ പരിഷ്ക്കരണമാണ് നടന്നുവരുന്നതെന്ന് ശ്രീ വെങ്കയ്യ നായിഡു പറഞ്ഞു

ഹൈദരാബാദ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്

സ്ഫോടന സംഭവത്തിലെ കുറ്റവാളികൾക്ക് മൂന്നാം പ്രതി അഭയം നൽകിയിരുന്നതായി ഹൈദരാബാദ് മജിസ്ട്രേറ്റ് കോടതി വൃക്തമാക്കി

നീരവ് മോദിയും ബന്ധു മെഹുൽ ചോക്സിയുമാണ് കേസിലെ പ്രധാന പ്രതികൾ

വിമാനങ്ങളുടെ പറക്കലിന് ഇടയിൽ ആകാശത്തുവെച്ചു തന്നെ വീണ്ടും ഇന്ധനം നിറയ്ക്കാനുള്ള പരീക്ഷണങ്ങളുടെ ഭാഗമായാണ് ട്രയൽ സംഘടിപ്പിച്ചത്

ശ്രീലങ്കൻ പാർലമെന്റ് സ്പീക്കർ കരു ജയസൂര്യയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ശ്രീലങ്കയിലെ വിവിധ പാർട്ടികളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ടിരുന്നു

മുപ്പത് അംഗങ്ങൾ എട്ട് സംഘമായി തിരിഞ്ഞാണ് വിവിധ ജില്ലകളിൽ സന്ദർശനം നടത്തുക

എല്ലാ ജില്ലകളിലും സന്ദർശനം നടത്തിയ ശേഷം ധനമന്ത്രിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായും സംഘം ചർച്ച നടത്തും പ്രളയക്കെടുതികളിൽ പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം ഇരുപതിനായിരം കോടി രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്

മുൻ പ്രധാനമന്ത്രി എച്ച് ്യി ്ദേവഗൌഡയും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു

ഇന്നലെ രാജസ്ഥാനും പെട്രോൾ ഡീസൽ ഉല്പന്നങ്ങളുടെ മേലുള്ള മൂല്യവർദ്ധിത നികുതിയിൽ ഇളവ് വരുത്തിയിരുന്നു

ചെന്നൈയിൽ വൃവസായ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ഇ

നിക്ഷേപകരുടെ താത്പര്യങ്ങൾക്ക് അനുസൃതമായാണ് നയം രൂപീകരിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

അടുത്ത വർഷം ജനുവരിയിൽ ചെന്നൈയിൽ രണ്ടാം ആഗോള നിക്ഷേപ സംഗമം സംഘടിപ്പിക്കുമെന്നും ശ്രീ

മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയ കേസെടുക്കുകയായിരുന്നു

ജോർജ്ജ് എം എൽ എയ്ക്കെതിരെ ദേശീയ വനിതാ കമ്മീഷൻ സമൻസ് അയച്ചു

പീഡനത്തിന് ഇരയായ കന്യാസ്ത്രീയ്ക്കെതിരെ വിവേചനപരമായ നിലപാടാണ് കൈക്കൊള്ളുന്നതെന്നും സഭയുടെ പിന്തുണ അവർക്ക് കിട്ടുന്നില്ലെന്നും കമ്മീഷൻ അധ്യക്ഷ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു

ബി പി ഡയറക്ടർ ജനറൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് തുക കൈമാറി

നാഗാലാന്റ് മണിപ്പൂർ മിസോറാം ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട് ബീഹാർ ഉത്തരാഖണ്ഡ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണ്ണാടക എന്നിവിടങ്ങളിലും ശക്തമായ മൂഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നൽകി

ഡി

സംസ്ഥാനത്തെ സ്ഥിതി തെരഞ്ഞെടുപ്പിന് അനുകൂലമല്ലെന്ന് മുൻമുഖ്യമന്ത്രിയും പി ഡി പി പ്രസിഡന്റുമായ മെഹബൂബ മുഫ്തി ശ്രീനഗറിൽ പറഞ്ഞു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി സംബന്ധിച്ച് അനുകൂല നിലപാട് ഉണ്ടാകുന്നതുവരെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് അവർ വൃക്തമാക്കി അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ തെരഞ്ഞെടുപ്പ് മാറ്റിവെയ്ക്കണമെന്ന് മെഹ്ബൂബ ആവശ്യപ്പെട്ടു

ജി വാനുകൾ ന്യൂഡൽഹിയിൽ കേന്ദ്ര വാർത്താവിനിയമ മന്ത്രി രാജവർദ്ധനൻ റാത്തോഡ് ഫ്ളാഗ് ഓഫ് ചെയ്തു മികച്ച എച്ച്